എം കേരളത്തിന്റെ വികസനത്തിന് നിക്ഷേപം നടത്തുന്ന പ്രവാ സികൾക്ക് ഉയർന്ന ഡിവിഡന്റും ജീവിതാവസാനം വരെ പെൻഷനും നൽകുന്ന പദ്ധതിയ്ക്ക് രൂപരേഖയായി നാളെ ദുബായിൽ ലോക കേരള സഭ പ്രഥമ പശ്ചിമേഷ്യൻ സമ്മേള നത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിയ്ക്ക് തുടക്കം കുറിക്കും

സംസ്ഥാനം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയി ലാണെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല ലോക്സഭാതെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ബി

പി അക്കൌണ്ട് തുറക്കില്ലെന്ന് കെ

സി പ്രസിഡണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അരിയിൽ ഷുക്കൂർ വധക്കേസിന്റെ വിചാരണ കണ്ണൂരിൽ നിന്ന് മാറ്റണമെന്ന് സി

ഐ ഡൽഹിയിലെ അഴിമതി വിരുദ്ധ ബ്യൂറോയുടെ നിയന്ത്രണം കേന്ദ്ര ഗവൺമെന്റിനെന്ന് സുപീം കോടതി കേരളത്തിന്റെ വികസനത്തിന് നിക്ഷേപം നടത്തുന്ന പ്രവാ സികൾക്ക് ഉയർന്ന ഡിവിഡന്റും ജീവിതാവസാനം വരെ പെൻഷനും നൽകുന്ന പദ്ധതിയ്ക്ക് രൂപരേഖയായി നാളെ ദുബാ യിൽ ലോക കേരള സഭ പ്രഥമ പശ്ചിമേഷ്യൻ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിയ്ക്ക് തുടക്കം കുറിക്കും പ്രവാസി നിക്ഷേപം സ്വരൂപിക്കാൻ പ്രത്യേക കമ്പനി പ്രവാസി ഗവേഷണത്തിന് അന്താരാഷ്ട്ര പഠന കേന്ദ്രം പ്രവാസികളുടെ മേൽനോട്ടത്തിൽ നിർമ്മാണക്കമ്പനി പുനരധിവാസ പദ്ധതികൾ എന്നിവ ലോകകേരള സഭയിൽ പ്രഖ്യാപിക്കും ചുരുങ്ങിയത് അഞ്ച് ലക്ഷം രൂപയോ അതിന്റെ ഗുണിതങ്ങളോ നിക്ഷേപിക്കുന്നവർക്ക് പെൻഷൻ പദ്ധതിയിൽ അംഗങ്ങളാവാം

അഞ്ച് വർഷം പൂർത്തിയായാൽ പ്രതിമാസ വരുമാനം ലഭിച്ച് തുടങ്ങും

യുവതികളുടെ സാന്നിധ്യം ശബരിമല അയ്യപ്പന്റെ ബ്രഹ്മച ര്യത്തെ ബാധിക്കില്ലെന്ന് സംസ്ഥാന ഗവൺമെന്റ് സുപ്രീംകോട തിയെ അറിയിച്ചു പുനപരിശോധനാ ഹർജികളിൽ എഴുതിനൽകി യിരിക്കുന്ന വാദത്തിലാണ് ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കി യത് യുവതികൾ എത്തുന്നത് അയ്യപ്പന്റെ ബ്രഹ്മചര്യത്തെ ബാധി ക്കുമെന്ന വാദം സ്ത്രീകളുടെ അന്തസ്സിനെ ഹനിക്കുന്നതാണ്

സംസ്ഥാനം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയി ലാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു ട്രഷറിയിൽ നിന്ന് ഒരു ബില്ലു പോലും മാറിയെടുക്കാൻ സാധിക്കാത്ത സാഹചര്യമാണെന്നും വികസന പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കുയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി സംസ്ഥാനത്തെ നിർമ്മാണ പ്രവർത്തന ങ്ങൾ പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്

തോമസ് ഐസക്ക് തയ്യാറായില്ലെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റ പ്പെടുത്തി ഗവണ്മെന്റിന്റെ സ്വജനപക്ഷപാതവും കെടുകാര്യ സ്ഥതയുമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം പ്രളയത്തിൽ നശിച്ച അരിയുടെയും നെല്ലിന്റെയും ഇൻഷുറൻസ് തുക വാങ്ങിയെടുക്കാൻ പോലും ഗവൺമെന്റിനായില്ല

വൈകിട്ട് അഞ്ചിന് വോട്ടെടുപ്പ് അവസാനിക്കും

വോട്ടെണ്ണൽ നാളെയാണ് ലോക് സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് എ

സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നതാണ് തന്റെ ദൌത്യം അത് ഭംഗിയായി നിറവേറ്റുമെന്നും പ്രിയങ്ക വ്യക്തമാക്കി ഉത്തർപ്രദേശിൽ പാർട്ടിച്ചുമതല വഹിക്കുന്ന പ്രിയങ്ക ഗാന്ധി പ്രവർത്തകരുമായി നടത്തിയ ആശയവിനിമയത്തിനിടെയാണ് സ്ഥാനാർത്ഥി യാകാനില്ലെന്ന് വ്യക്തമാക്കിയത് നേരത്തെ യുപിയിലെ രണ്ട് മണ്ഡലങ്ങളിൽ പ്രിയങ്ക മത്സരിക്കണമെന്ന് പാർട്ടി പ്രവർത്തകർ ആവശ്യമുന്നയിച്ചിരുന്നു

ജെ പി യുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അൽപ്പസമയത്തി നകം പത്തനംതിട്ടയിലെത്തും നാല് ലോക്സഭാ മണ്ഡലങ്ങളുടെ ക്ലസ്റ്റർ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും പത്തനംതിട്ട പാർല മെന്റ് മണ്ഡലത്തിലെ പേജ് പ്രമുഖന്മാരുടെ യോഗത്തിൽ അദ്ദേഹം പ്രസംഗിക്കുമെന്ന് ബി ജെ പി നേതൃത്വം അറിയിച്ചു ലോക് സ ഭാ തെ ര ഞ്ഞെ ടു പ്പിൽ സംസ്ഥാനത്ത് ബി ജെ പി അക്കൌണ്ട് തുറക്കില്ലെന്ന് കെ

സി സി പ്രസിഡണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു ഏതൊക്കെ നേതാക്കൾ മത്സരി ക്കണമെന്ന് ഹൈക്കമാന്റ് നിർദേശിച്ചിട്ടില്ലെന്നും വിജയസാധ്യത മാത്രമായിരിക്കും മാനദണ്ഡമെന്നും അദ്ദേഹം തൃശൂരിൽ വ്യക്ത മാക്കി

ഡി എഫ് ജാഥ നടത്തുന്നത് എന്തിനാണെന്ന് മനസ്സി ലാകുന്നില്ലെന്നും ജാഥ പ്രഹസനമാണെന്നും മുല്ലപ്പള്ളി അഭിപ്രാ യപ്പെട്ടു ദേവികുളം എം

എ എസ് രാജേന്ദ്രനെതിരായി കേസെടുക്കാൻ ഗവൺമെന്റ് തയ്യാറാവാത്തത് എന്തുകൊണ്ടാ ണെന്ന് അദ്ദേഹം ചോദിച്ചു തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയ മാകില്ലെന്നും മുല്ലപ്പള്ളി അഭിപ്രായപ്പെട്ടു

എ ആയതിനാൽ ലോക്സഭാ തെരഞ്ഞെ ടുപ്പിൽ മത്സരിക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു

ഘടകക്ഷികൾക്ക് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാൻ അവകാശമുണ്ടെന്നും ഇക്കാര്യത്തിൽ തർക്കത്തിലേക്ക് പോകില്ലെന്നും ഉമ്മൻചാണ്ടി തിരുവന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ മത്സരിക്കുന്ന നാല് സീറ്റിലും രാഷ്ട്രീയ സ്ഥാനാർത്ഥികൾ മാത്രമാണ് ഉണ്ടാവുകയെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അറിയിച്ചു വയനാട് ഉൾപ്പടെ ഒരു സീറ്റിലും പൊതു സമ്മതനെ തേടി പോകില്ലെന്നും നഴ്സസ് അസോസിയേഷൻ നേതാവ് ജാസ്മിൻ ഷായെ മത്സരിപ്പിക്കുന്നത് പരിഗണിച്ചിട്ടില്ലെന്നും അദ്ദേഹം സ്വകാര്യ ചാനലിനോട് പറഞ്ഞു ബംഗാളിലെ കോൺഗ്രസ് സഹകരണം കേരളത്തിലെ മുന്നണി സാധ്യതകളെ ബാധിക്കില്ലെന്ന് കാനം വ്യക്തമാക്കി

ഐ സംസ്ഥാന സെക്രട്ടറി അറിയിച്ചു എസ് രാജേന്ദ്രൻ എം

എ ക്കെതിരെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന് സി

ഐ

എസ് രാജേന്ദ്രന്റെ നടപടി അപക്ഷമാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു അനിൽ അംബാനിക്കെതിരായ സുപ്രീംകോടതി ഉത്തരവിൽ മാറ്റംവരുത്തിയതിന് രണ്ട് ജീവനക്കാരെ സുപ്രീംകോടതി പിരി ച്ചുവിട്ടു കോർട്ട് മാസ്റ്റർമാരായ മാനവ് ശർമ്മ തപൻകുമാർ ചക്ര ബർത്തി എന്നിവരെയാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പിരിച്ചുവിട്ടത് അനിൽ അംബാനിയുടെ റിലയൻസ് കമ്മ്യൂണിക്കേ ഷനെതിരെ എറിക്സൺ ഇന്ത്യ നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിലെ ഉത്തരവിൽ മാറ്റംവരുത്തിയെന്ന ആരോപണത്തെ തുടർന്നാണ് നടപടി അരിയിൽ ഷുക്കൂർ വധക്കേസിന്റെ വിചാരണ കണ്ണൂരിൽ നിന്ന് മാറ്റണമെന്ന് സി ബി ഐ ആവശ്യപ്പെട്ടു തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയാണ് നിലവിൽ കേസ് പരിഗണിക്കുന്നത് ഇവിടെ നിന്ന് കൊച്ചിയിലെ പ്രത്യേക സിബിഐ കോടതിയിലേക്ക് മാറ്റണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ആവശ്യം

കേസിൽ സമർപ്പിച്ച അനുബന്ധ കുറ്റപത്രം കോടതി പരിഗണിക്കവെയാണ് സി ബി

ഡൽഹിയിലെ അഴിമതി വിരുദ്ധ ബ്യൂറോയുടെ നിയന്ത്രണം കേന്ദ്ര ഗവൺമെന്റിനാണെന്ന് സുപീംകോടതി രണ്ടംഗ ബഞ്ച് വിധിച്ചു അതേയസമയം സർവീസ് വിഷയങ്ങളിൽ ജസ്റ്റിസുമാരായ എ കെ സിക്രിയും അശോക് ഭൂഷണും തമ്മിൽ അഭിപ്രായ വൃത്യാസം ഉണ്ടായതോടെ വിഷയം മൂന്നംഗ ബഞ്ചിന് വിട്ടു സുപ്രീംകോടതി പരിഗണിച്ച ആറ് വിഷയങ്ങളിൽ നാലെണ്ണത്തിലും കേന്ദ്രത്തിന് അനുകൂല മായാണ് കോടതി തീരുമാനമെടുത്തത് തിരുവനന്തപുരം തോളിക്കോട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായ ഇമാം ഷഫീഖ് അൽ ഖാസിമിക്കായി പൊലീസ് ഇന്ന് ലുക്ക് ഔട്ട് നോട്ടീസ് പുറ ത്തിറക്കും നോട്ടീസിറക്കാൻ അനുമതി തേടി അന്വേഷണ ഉദ്യോ ഗസ്ഥനായ നെടുമങ്ങാട് ഡി

പി ഡി അശോകൻ ജില്ലാ പൊലീസ് മേധാവിയ്ക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഷഫീഖ് രാജ്യം വിടാൻ സാധ്യതയുള്ളതിനാൽ വിമാനത്താവളങ്ങളിൽ പൊലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അന്വേഷണം ഊർജ്ജിത മാക്കിയിട്ടുണ്ടെന്നും പ്രതിയെ ഉടൻ പിടികൂടുമെന്നും ഡി ജി പി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു യുവാവിനെ കാറിൽ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് മൊബൈൽ ഫോണും പണവും തട്ടിയെടുത്ത കേസിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി ജയിലിൽ കഴിയുന്ന ചൊക്ലിയിലെ കൊടി സുനിയെ പൊലീസ് അറസ്റ്റ് ചെയ്തു പരോളിലിറങ്ങിയ സമയത്ത് കുറ്റകൃത്യത്തിൽ പങ്കാളിയാവുകയായിരുന്നുവെന്ന് പൊലീസ് പറ ഞ്ഞു

പ്രളയ കാലത്ത് ഗവൺമെന്റിന്റെയും ജില്ലാഭരണ കൂടങ്ങളുടെയും ദൂരന്തനിവാരണ പ്രവർത്തനങ്ങളും പുനർ നിർമാണ പ്രവർത്തനങ്ങളും മാതൃകാപരമാണെന്ന് മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ പറഞ്ഞു മാനന്തവാടി രൂപത പ്രളയ ദുരിതാശാസ ഭവന പദ്ധതിയുടെയും കാരിത്താസ് ഇന്ത്യ സമഗ്ര പ്രളയ പുനരധിവാസ പദ്ധതിയുടെയും ഉദ്ഘാടനം നിർവഹിക്കു കയായിരുന്നു അദ്ദേഹം ഇന്ധനവിലയിൽ നേരിയ വർധന പെട്രോൾ ലിറ്ററിന് ഏഴ് പൈസയും ഡീസലിന് അഞ്ചുപൈസയുമാണ് ഇന്ന് കൂടിയത്

ഡൽഹിയിൽ വീണ്ടും തീപിടിത്തം വെസ്റ്റ് ഡൽഹിയിലെ നരൈന പേപ്പർ ഫാക്ടറിയിലാണ് രാവിലെ ഏഴേകാലോടെ തീപിടിത്തമുണ്ടായത് ആളപായമുണ്ടായതായി റിപ്പോർട്ടില്ല കെട്ടി ടത്തിന്റെ മുകൾ നിലയിലാണ് അഗ്നിബാധയുണ്ടായത് പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ ശരത് ചന്ദ്ര മറാഠെ യുടെ ഭാര്യ മനീഷ മറാഠെ അന്തരിച്ചു

ഇന്നു പുലർച്ചെ കോഴിക്കോട്ടെ വസതിയിലായിരുന്നു അന്ത്യം കോഴിക്കോട് കോരപ്പുഴ പാലത്തിന് സമീപം പുലർച്ചെ ലോറി കൾ കൂട്ടിയിടിച്ച് ഡ്രൈവർ മരിച്ചു